ജയരാജൻ വീണ്ടും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റു

പുതുക്കിയ ട്രെയിൻ സമയം നാളെ നിലവിൽവരും

രാജ്ഭവനിൽ ലളിതമായ ചടങ്ങിൽ ഗവർണർ പി സദാശിവം അദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലികൊടുത്തു മുഖ്യ മന്ത്രി പിണറായി വിജയൻ മന്ത്രി സഭാ അംഗങ്ങൾ മു്തിർന്ന് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു എന്നാൽ ജയരാജന് മന്ത്രിയാകാൻ ധാർമ്മികമായി അവകാശമില്ലെന്ന് ആരോപിച്ച് യു ഡി എഫ് നേതാക്കൾ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നു

ഓണാഘോ ഷത്തിന് നീക്കിവെച്ച തുക ദുരന്തബാധിതരെ സഹായിക്കാൻ മാറ്റിവെക്ക ണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു

തന്ത്രപ്രധാന മേഖലകളിൽ ത്രിതല സുരക്ഷയാണ് ഏർപ്പെടുത്തിയത് മെട്രോസ്റ്റേഷൻ വിമാനത്താവളങ്ങൾ സൈനിക ക്യാമ്പുകൾ എന്നിവിടങ്ങളിൽ സൈനൃത്തിന് പുറമെ ആകാശ നിരീക്ഷണവും ഉണ്ട് പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്ന ചെങ്കോട്ടയുടെ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തു

ഇവിടങ്ങളിൽ ബി എസ് എഫിന് പുറമെ അർദ്ധസൈനിക വിഭാഗത്തെയും വിന്യസിച്ചിട്ടുണ്ട് കശ്മീർ താഴ്വരയിൽ പാരാ കമാന്റോകൾക്കാണ് സുരക്ഷാ ചുമതല

ടി പ്രേമരാജൻ് ഐ പി മധുസൂദനൻ നായർ ടി എസ്

കെ ബോബൻ ഇ എം അബ്ദുൾ റഷീദ് ടി സതി പി തുടങ്ങിയവരാണ് അർഹരായത്

അന്വേ ഷണസ്ംഘം ഇന്നലെ ജലസ്റിലെ ബിഷപ്പ് ഹൌസിൽ വെച്ച് ഫ്രൈങ്കോയെ വിശദമായി ചോദ്യം ചെയ്തിരുന്നു

അന്വേഷണസംഘം ജലന്ധ റിൽ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങുമെന്നാണ് ഇപ്പോഴത്തെ വിവരം അതി നിടെ ബിഷപ്പിന്റെ അറസ്റ്റ് വൈകുന്നതിനെതിര്രെ കന്യാസ്ത്രീയുടെ കുടുംബം കോടതിയെ സ്മീപിക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകളുണ്ട് ബിഷപ്പിനെതിരായ പരാതിയിൽ ഉറച്ച് നിൽക്കുന്നതായി കന്യാസ്ത്രീയുടെ സഹോ്ദരൻ മാധ്യമങ്ങളോട് പറഞ്ഞു

പ്രതിയുടെ ആവശ്യത്തേക്കാൾ വലുതാണ് ഇരയുടെ സ്ഥകാര്യതയെന്ന് നിരീക്ഷിച്ചാണ് ഹൈക്കോടതി ഹർജി തള്ളിയത് ദിലീപിന്റെ ഇതേ ആവശ്യം നേരത്തെ കീഴ്ക്കോടതിയും തള്ളിയിരുന്നു അതേസമയം ് വിചാരണ വൈകിപ്പിക്കാനുള്ള ശ്രമത്തിന്റ ഭാഗമായാണ് ദിലീപിന്റെ ഹർജിയെന്ന് സംസ്ഥാ്ന ഗവൺമെന്റ് വാദിച്ചു

തുർക്കിയുടെ ലിറക്കുണ്ടായ മൂല്യത കർച്ചയോട്ടെയാണ് ഇന്ത്യൻ രൂപയ്ക്കും വിനിമയമൂല്യവും ഇടിഞ്ഞത് തുർക്കിയിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ ലോകവ്യാപകമായ സാമ്പത്തിക മാന്ദ്യമുണ്ടാക്കുമെന്ന ഭീതിയിലാണ് നിക്ഷേപകർ ൾ രു ശ്ര ശ്ര രു രു ശ്ര ശ്ര രു സംസ്ഥാനത്ത് ഇത്തവണ കാലവർഷത്തിൽ സമാനതകളില്ലാത്ത ദൂരി തങ്ങളാണ് ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറ്ഞ്ഞു

ചില പാലങ്ങൾ പുനർനിർമ്മിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യേണ്ടിവരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരും ഇടപെട്ട് ദുരിതത്തിൽ സഹായിച്ചു എന്ന് പിണറായി അറിയിച്ചു ഗവർണറും പ്രതിപക്ഷനേതാവും ദുരിതാ ശ്വാസ പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റിന് സഹായം നൽകി ഇക്കാര്യ ത്തിൽ സംസ്ഥാനത്ത് ഭിന്നതയില്ലെന്നും മുഖ്യമന്ത്രി അറിയിച്ചു

വയനാട് മലപ്പുറം കോഴി ക്കോട് കണ്ണൂർ ജില്ലകളിൽ മഴ തുടരുകയാണ് സംസ്ഥാനത്ത് നാളെവരെ ദ്ദ അതിശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാനി രീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ബംഗാൾതീരത്ത് രൂപപ്പെട്ട ന്യൂന മർദ്ദമാണ് ശക്തമായ കാറ്റിന് ്കാരണം

മലയോര മേഖല യിലുള്ളവും ജാഗ്രത പാലിക്കണം ള ൽ ൾ വാളയാർ ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ കനത്ത മഴ തുടരുന്നതി നാൽ ഡാമിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയാണ് ഈ സാഹച ര്യത്തിൽ ഏത് നിമിഷവും ഡാം തുറക്കാൻ സാധ്യതയുണ്ട് വാളയാർ പുഴയുടെ തീരത്ത് താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്

ഗായത്രി പുഴയുടെ തീരത്ത് താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് മുന്നറിയിപ്പ് മാട്ടുപ്പെട്ടി ഡാമിന്റെ ഒരു ഷട്ടർ തുറന്നതിനെ തുടർന്ന് പെരിയാറ്റിലേക്ക് വെള്ളം ഒഴുക്ക് കൂടി

കനത്ത് മഴയെ തുടർന്നാണ് എ ഡി എം അവധി പ്രഖ്യാപിച്ചത്

അണക്കെട്ടിലേക്ക് പ്രധാനമായും വെള്ള്മെത്തുന്ന വേലാംപൊറ്റ മായപ്പാറ പുഴകൾ നിറഞ്ഞൊഴുകു കയാണ്

പ്രഭാതഭേരി റാലി എന്നിവയും വേണ്ടെന്ന് വെച്ചു ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ്

സുനിൽകുമാർ അറിയിച്ചു അങ്കമാലി അത്താണി യിൽ അഗ്രോ ബസാർ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവ്വഹിക്കുകയായി രുന്നു മന്ത്രി

ആർ

കൊല്ലം ബസ്സ്പകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് പരി ഷ്കരണം

തിരുവനന്തപുരം ന്യൂഡൽഹി കേരള എക്സ്പ്രസിന്റെ സർവ്വീസ് എറണാകുളം ടൌൺ വഴി സ്ഥിരമാക്കി

നിലമ്പൂർ എറണാകുളം കോട്ടയം എറണാകുളം ട്രെയിനുകൾ കൂട്ടിചേർത്ത് നിലമ്പൂർ കോട്ടയം സർവ്വീസാക്കും

കരുണാകരൻ എംപി റെയിൽവെ ജനറൽ മാനേ ജർക്ക് നിവേദനം നൽകി ഈ ട്രെയിനുകളിൽ മൂന്ന് വീതം ജനറൽ കോച്ച് കൂടി അനുവദിക്കണമെന്നാണ് നിവേദനത്തിൽ ആവശൃപ്പെട്ടത് രു ൽ ശ്വ ൾ ഒ ൾ ഒ ൾ ഒ രു ഇരിട്ടി താലൂക്കിലെ അടക്കാത്തോട് ശാന്തിഗിരി കൈലാസപ്പടി മേ ഖലകളിൽ ഭൂമിയിലും കെട്ടിടങ്ങളിലുമുണ്ടായ വിള്ളലുകൾ സംബന്ധി ച്ച് ശാസ്ത്രീയ പഠനം നടത്തുതിന് സെന്റർ ഫോർ എർത്ത് സയൻസ് സ് റ്റഡീസിന്റെ സഹായം തേടാൻ തീരുമാന്ം ഇത് സോയിൽ പൈപ്പിംഗ് പ്ര തിഭാസമാവാൻ സാധ്യതയുണ്ടെന്ന പ്രാഥമിക പഠനം നടത്തിയ ജില്ലാ ജി യോളജിസ്റ്റിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണിത്

ഉത്തർപ്രദേശ് സ്വദേശി വ്ഖീലിനെ അറസ്റ്റു ചെയ്തു രു ൽ ശ്വ ൾ ഒ ൾ ഒ ൾ ഒ രു കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ഇടത്തരം വിമാനങ്ങളുടെ സർവീസ് ആരംഭിക്കുന്നതിന് അനുമതി പത്രം എയർപോർട്ട് അതോറിറ്റി സൌദി എയർലൈൻസിന് കൈമാറി